അടുത്ത ദശകത്തിൽ ആഗോള വികസനത്തിനുള്ള പ്രമുഖ രാഷ്ട്രമായി ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്

ചൈന സന്ദർശനത്തിനിടെ തങ്ങളുടെ മേധാവിയെ കാണാതായ സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭൃമാക്കണമെന്ന് ചൈനയോട് ഇന്റർപോൾ ആവശൃപ്പെട്ടു

ഉത്തരാഖണ്ഡിലെ ആദ്യ നിക്ഷേപക ഉച്ചകോടി ഡറാഡൂണിൽ ഉത്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

നികുതി പരിഷ്ക്കരണം രാജ്യപുരോഗതി സുതാര്യവും വേഗത്തിലു്മാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാപ്പരത്ത നിയമം പാസാക്കുമുതിലൂടെ രാജ്യത്തെ വ്യാപാര മേഖല സുതാര്യമാവുകയും ബ്രാങ്ക്ടിംഗ് രംഗം ശക്തിപ്പെടുകയും സാമ്പത്തിക കമ്മി കുറയുകയും ക്ഷ്യ്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ആരോഗൃമേഖലയിൽ ഒട്ടേറെ നിക്ഷേപ സാധൃതകളുള്ള പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുനരുപയോഗ ഊർജ്ജത്തിന്റെ കാര്യത്തിൽ രാജ്യം മുൻപന്തിയിലാണ് ഉത്തരാഖണ്ഡിൽ നിക്ഷേപ സാധൃതകൾ വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയിൽ പ്രമുഖ വൃവസായ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഉച്ചകോടിയിലൂടെ സംസ്ഥാനത്ത് എഴുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിക്കവെ സംസ്ഥാന മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് പറഞ്ഞു

ഇന്ന് ഉച്ചയ്ക്ക്ശേഷം തലസ്ഥാനമായ ദുഷാൻബേയിൽ എത്തിയ രാഷ്ട്രപതിയെ താജിക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു നാളെ രാവിലെ രാഷ്ട്രപതിയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും അതിനുശേഷം ഇരുരാഷ്ട്രങ്ങളിലെയും നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തും താജിക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമാമൊലി റഹ്മോൻ പാർലമെന്റ് സ്പീക്കർ ഷുകൂർ ജോൻ സുഹ്റോവ് തുടങ്ങിയവരുമായി രാഷ്ട്രപതി വിവിധ തലങ്ങളിൽ ചർച്ച നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രാലയം വൃക്തമാക്കി താജിക്കിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും ഇരുരാജ്യങ്ങളും തമ്മിൽ ഒട്ടേറെ മേഖലകളിലെ സഹകരണം ഉഭയകക്ഷിബന്ധങ്ങൾ തുടങ്ങിയവ ചർച്ചാ വിഷയമാകും ത്രിദിന സന്ദർശനത്തിനിടെ താജിക്ക് ദേശീയ സർവ്വകലാശാല സന്ദർശിക്കുന്ന രാഷ്ട്രപതി ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും താജിക്കിസ്ഥാനിലെ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ സ്മാരകങ്ങളിൽ രാഷ്ട്രപതി പ്രണാമം അർപ്പിക്കും

ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ അസാം പ്പിദ്ദേശിയായ ഇയാളെ കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിലാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി ഹൊജയിലേക്ക് കൊണ്ടുപോയ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്ന് ഔദ്യോഗികവൃത്തങ്ങൾ വെളിപ്പെടുത്തി

വട്ടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്പീർക്കർമാരും ഡെപ്യൂട്ടി സ്പീക്കർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് എന്നിവിടങ്ങളിൽ ശക്തമായ മഴ പെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് ഇന്നലെ പിൻവലിച്ചെങ്കിലും ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരും ഇടുക്കി ജില്ലയിലെ കുമളിയിൽ മണ്ണിടിച്ചിൽമൂലം ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

പെരിയാർ നദീതീരങ്ങളിൽ പമ്പ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ ദുരന്തപ്രതികരണ സേനയുടെ അഞ്ച് യൂണിറ്റുകൾ വയനാട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട കോഴിക്കോട് ജില്ലകളിൽ എത്തിയിട്ടുണ്ട്

വായുസേനയുടെ ഈ പാരമ്പരൃം കാത്തുസൂക്ഷിക്കാൻ ഖാസ്യാബാദിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ സ്ഥാനാരോഹണ ചടങ്ങ്ട്ട് പ്പ്രേഡും സംഘടിപ്പിച്ചിട്ടുണ്ട്

ഇന്ന് രാവിലെ ഗുവഹാത്തിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്തൃം

ഗുവഹാത്തിയിലെ കസ്തൂർബ ആശ്രമത്തിൽ കൊണ്ടു പോയ ഭൌതികശരീരം അവിടെ നിന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായ നാഗാലാന്റിലെ ചുചുയിംലാങിലേയ്ക്ക് കൊണ്ടു പോകും

കശ്മീർമേഖലയിൽ പ്രത്യേകിച്ചും രണ്ട് മാസത്തേയ്ക്ക് അതീവ സുരക്ഷാക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഗവർണർ സത്യപാൽ മാലിക് ഇന്നലെ സംസ്ഥാനത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി കരസേന പോലീസ് സി

എഫ് ഇന്റലിജൻസ് മേധാവികൾ പങ്കെടുത്ത യോഗത്തിലാണ് ഗവർണർ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തത്

സംസ്ഥാനത്തെ പ്പട്ടണ്ട്ടളുടെയും ഗ്രാമങ്ങളുടെയും വികസനം അവിടുത്തെ പ്രാ്ദേശിക പ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹ്യം പ്റഞ്ഞു

അനന്ത്നാഗ് കുൽഗാം പുൽവാമ ഷോപ്പിയാൻ ജില്ലകളിൽ ഇന്നലെ രാത്രിമുതലാണ് ഇന്റർക്കറ്റ് സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നവെന്ന് ഔദ്യോഗികവൃത്തങ്ങൾ പറഞ്ഞു

വി പാറ്റ് മെഷീനുകളും സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചു

വി പാറ്റുകളും പരിശീലനത്തിനുവേണ്ടിയുള്ള മെഷീനുകളും സജ്ജമാക്കേണ്ടതുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സജ്ജീകരണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്

ഗാന്ധിജിയുടെ പൌത്രി ശ്രീമതി ഷെല്ലിക് ജൂട്ടതി വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കസ്തൂർബാ ർട്ട്സ്ി നാഷണൽ മ്യൂസിയം ട്രസ്റ്റിയാണ് ശ്രീമതി

ഇവരുടെ കലാവിരുന്ന് അങ്ങേയറ്റം പ്രശംസനീയമാണെന്ന് മുന്തി പറഞ്ഞു

ഇന്ത്യയുടെ രണ്ടാമത്തെ വിജയമാണിത്

ഇന്ത്യയുടെ അടുത്ത കളി ചൊവ്വുഴ്ച ജപ്പാനെതിരെയാണ്

ഇന്റർപോൾ പ്രസിഡന്റ് മെങ് ഹോങ്വേയാണ് ചൈനീസ് യാത്രയ്ക്കിടെ അപ്രതൃക്ഷനായത് ചൈന ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മെങ്നെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് ചൈനയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു